കൈകാരൃം ചെയ്യാനായിട്ടു രാജ്യത്ത് ആയിരം കോടതികൾ കൂടി സ്ഥാപിക്കാൻ ക്യേന്ദ് അനുമതി

മണ്ഡലകാലത്തിന് നാളെ തുടക്കം

ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല മധ്യപ്രദേശിലെ ഷഹ്ദോളിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതല്ല പ്രധാന പ്രശ്നമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മധ്യപ്രദേശിലെ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു

വരുന്ന തലമുറയ്ക്ക് ഏത് രീതിയിലുള്ള രാജ്യമാണ് വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്രഗവൺമെന്റിന്റെ മന്ത്രമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നാല് തലമുറ രാജ്യം ഭരിച്ച കോൺഗ്രസ് ജനങ്ങളോട് ഒന്നും തുറന്ന് പറഞ്ഞില്ലെന്ന് കുറ്റപ്പെടുത്തി

രാജ്യത്തെമ്പാടും കേസുകളും സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളും കെട്ടിക്കിടക്കുന്നതിനാലാണ് പുതിയ കോടതികൾ സ്ഥാപിക്കുന്നത് നിർഭയ ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള വിഹിതം നീക്കി വെക്കുക

ലൈംഗിക അതിക്രമ കേസുകൾ തെളിയിക്കുന്നതിനുള്ള ഫോറൻസിക് കിറ്റുകൾ ആഭൃന്തരമന്ത്രാലയത്തിന് ലഭൃമാക്കാനുളള ശുപാർശയ്ക്കും അംഗീകാരം നൽകി

ഡൽഹി മെട്രോപൊളീറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ്

ശശി തരൂർ ഗൂഢ ഉദ്ദേശൃത്താൽ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും ഹിന്ദു ദൈവത്തെ അപമാനിച്ചുവെന്നുമാണ് ഡൽഹിയിലെ ബിജെപി നേതാവായ രാജീവ് വെബ്ബാർ സമർപ്പിച്ച പരാതിയിൽ ആരോപിക്കുന്നത് കുറ്റം തെളിഞ്ഞാൽ രണ്ട് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ശശിതരൂരിന്റെ പേരിലുള്ളത്

മുൻ ഡെപ്യൂട്ടി ചീഫ് വിപ്പ് പ്രസന്നകുമാർ പാൽ ഉൾപ്പെടെ അന്തരിച്ച നാല് പേർക്ക് മുഖ്യമന്ത്രി നവീൻ പട്നായിക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് നരസിംഹമിശ്ര ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് കെ

പിന്നീട് ബഹളത്തെ തുടർന്ന് സ്പീക്കർ സഭ ഇന്നത്തേക്ക് നിറുത്തി വച്ചു

ബി ഐ ഡയറക്ടർ അലോക് വർമ്മക്കെതിരായ കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു തിങ്കളാഴ്ചയോടെ ഇതു സംബന്ധിച്ച പ്രതികരണം അറിയിക്കണമെന്നും കോടതി പറഞ്ഞു റിപ്പോർട്ടിന്റെ പകർപ്പ് അറ്റോർണി ജനറലിനും സോളിസിറ്റർ ജനറലിനും നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ചൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ച് നിർദ്ദേശിച്ചു ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച് തുടർവാദം കേൾക്കും റിപ്പോർട്ട് വേണമെന് സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടർ രാക്ട്രേഷ് അസ്താനയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല

കഴിഞ്ഞു തിങ്കളാഴ്ചയാണ് വിജിലൻസ് കമ്മീഷൻ പ്രാഥമിക റിപ്പോർട്ട് സ്മർപ്പിച്ചത്

ഉല്പാദന നഷ്ടം എങ്ങനെ കുറയ്ക്കാമെന്നതാണ് ഇപ്പോൾ കാർഷികമേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളി

തമിഴ്നാട്ടിലെ നാഗപട്ടണം കടലൂർ രാമനാഥപൂരം പുതുച്ചേരിയിലെ കാരയ്ക്കൽ തുടങ്ങിയ ജില്ലകളിലാണ് ചുഴലിക്കാറ്റ് വൻ നാശംവിതച്ചത് ചുഴലിക്കാറ്റിനെ തുടർന്ന് തിരുവാരൂർ തഞ്ചാവൂർ പുതുക്കോട്ട ജില്ലകളിൽ നാശനഷ്ടങ്ങളുണ്ടായി ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തു കേന്ദ്ര കാലാവസ്ഥാവകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ഗജ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി രൂപം പ്രാപിച്ച് തമിഴ്നാട്ടിൽ നിന്ന് മദ്ധ്യ കേരളത്തിലൂടെ പടിഞ്ഞാറ് ദിശയിൽ അറബിക്കടലിലേയ്ക്ക് സഞ്ചരിക്കും ഇതിന്റെ ഫലമായി കേരളത്തിൽ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലും കേരളത്തിലെ മിക്ക് ജില്ല്കളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്

തമിഴ്നാട്ടിൽ നാശം വിതച്ച ഗജ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യപിച്ച ഇടുക്കി ജില്ലയിലും കനത്ത മഴയാണ് മൂന്നാർ വട്ടവടയിൽ ഉരുൾപൊട്ടി മണ്ണിടിഞ്ഞ് പന്നിയാർകുട്ടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാർ ദേവികുളം കൊന്നത്തടി രാജാക്കാട് വെള്ളത്തൂവൽ അടിമാലി മേഖലയിൽ കനത്ത മഴ തോടുകൾ കര കവിഞ്ഞൊഴുകി കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയ നിലയിൽ നേര്യമംഗലം തട്ടേക്കണ്ണിയിൽ ഉരുൾ പൊട്ടി വാഹനഗതാഗതം തടസപ്പെട്ടു ഫയർ ഫോഴ്സും പൊലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഈ മേഖലയിൽ കൂടുതൽ ഇടിച്ചിലുണ്ടാകാൻ സാദ്ധ്യതയുണ്ട് ചേലച്ചുവട് വണ്ണപ്പുറം റൂട്ടിൽ പഴയരിക്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പരിസരങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്

തന്ത്രി കണ്ഠരര് രാജീവരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എ

കനത്ത മഴയാണ് സന്നിധാനത്തും പമ്പയിലും ദർശനത്തിനായി വൻ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്

സാവകാശഹർജി തിങ്കളാഴ്ച ഫയൽ ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിനുശേഷം പ്രസിൻ്റ്

പമ്പയിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് വിലക്കുള്ള കാര്യവും സുപ്രീംകോടതിയെ അറിയിക്കും തുലാമാസ പൂജയ്ക്കായും ചിത്തിര ആട്ടവിശേഷത്തിനും ക്ഷേത്രനട തുറന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ കോടതിയെ ധരിപ്പിക്കുമെന്നും ദേവസ്വംബോർഡ് പ്രസിഡന്റ് വൃക്തമാക്കി ശബരിമല ദർശനത്തിനായി എത്തിയ തൃപ്തി ദേശായിയും സംഘവും പൂനെയിലേക്ക് മടങ്ങുമെന്ന് പൊലീസ് അറിയിച്ചു

ജി പി ലോക്നാഥ് ബെഹ്റ രാത്രി നട അടച്ചു കഴിഞ്ഞാൽ തീർഥാടകർ മലയിറങ്ങണമെന്നും സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കില്ലെന്നും ഡി ജി

ജി

തീർത്ഥാടകർക്കുള്ള വാഹന പാസ് നൽകു ന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് ഡിജിപി പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

സാങ്കേതികവിദൃയുടെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞൂ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയാൽ അത് പരാജയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ മാധ്യമ ദിനത്തോട് അനുബന്ധിച്ചുള്ള ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ വിശ്വാസൃത നിലനിർത്തുക എന്നതാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അഭിപ്രായസ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാൻ ഇന്ന് ഒട്ടേറെ മാർഗ്ഗങ്ങളുണ്ട് ആർക്കും തടയാനാവില്ല സാമൂഹൃ മാധ്യമങ്ങളുടെ വളർച്ചയോടെ സാങ്കേതിക വിദ്യ മാധ്യമരംഗത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു

ചില അംഗങ്ങൾ സ്പീക്കറുടെ കസേര കയ്യേറിയതിനാൽ സഭ തുടങ്ങാൻ വൈകി പുതിയ ഗവൺമെന്റിലെ എം പി മാർ കസേര കയ്യേറിയപ്പോൾ സ്പീക്കർ സഭയിൽ ഉണ്ടായിരുന്നില്ല